കോൺഗ്രസ് നേതൃത്വത്തിൽ രൂപ്പീക്കിക്കുന്ന മഹാസഖ്യം നിലനിൽപ്പിനുവ്വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ്ണി ജെ പി ഇതര കോൺഗ്രസ് ഇതര മുന്ന്ണി രൂപീകരിക്കാൻ ടി

തമിഴ്നാട്ടിൽ നിന്നെത്തിയ വനിതാ സംഘം ശബരിമല ദർശനം നടത്താനാകാതെ മടങ്ങി

ഏറ്റവും വേഗത്തിൽ സൈക്കിളിൽ ലോകം ചുറ്റുന്ന ഏഷ്യാക്കാരിയെന്ന ബഹുമതി ഇന്തൃയിലെ വേദാംഗി കുൽക്കർണിയ്ക്ക്

വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് ദേശീയപാത സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ

നിലനിൽപിന്റെ രാഷ്ട്രീയമാണ് ഇക്കൂട്ടർ പയറ്റുന്നതെന്നും ശ്രീ

ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതോ ജനങ്ങൾക്ക് വേണ്ടിയോ ഉള്ള സഖ്യമല്ല അത് മറിച്ച് അധികാരത്തിന് വേണ്ടിയുള്ളതാണ് തമിഴ്നാട്ടിലെ ചെന്നെയിലെ മദ്ധ്യ വടക്ക് ഭാഗങ്ങൾ മധുര തിരുച്ചിറപ്പള്ളി തിരുവള്ളുവർ എന്നിവിടങ്ങളിലെ ബി ജെ

കോൺഗ്രസും ഡി

കെ യും തമ്മിൽ രൂക്ഷമായ ഭിന്നതകളുണ്ടായിരുന്നത് മറക്കാനാവില്ല എന്നാൽ ഇപ്പോൾ ഇരു പാർട്ടികളും ഒരുമിക്കാൻ താല്പര്യപ്പെടുകയാണ് ഇത്തരം മഹാസഖ്യങ്ങൾ സമ്പന്നമായ വംശങ്ങളുടെ കൂട്ടായ്മകളാണ് കുടുംബവാഴ്ച നിലനിർത്താനാണ് അവരുടെ ശ്രമമെന്നും ശ്രീ

പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷറൻസ് ലഭിക്കുന്ന പദ്ധതി നിലവിൽ വന്നതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

എ യിലെ പാർട്ടികൾ തമ്മിൽ അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയിട്ടുള്ള സീറ്റ് ധാരണയായി

ജെ പി ജെ ഡി യു എൽ ജി പിട്ടുഎന്നീ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലാണ് സീറ്റ് പങ്കിടാനുള്ള ധാര്യണ്ട്യിലെത്തിയത്

ജെ പി യും ജെ

രാംവിലാസ് പാസ്വാന്റെ ് എൽ

പി ആറ് സീറ്റുകളിൽ മത്സരിക്കും

ജെ

രാംവിലാസ് പാസ്പാൻ എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരം അറിയിച്ചത്

രാംവിലാസ് പാസ്വാന് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് ബി ജെ പി അധ്യക്ഷൻ വെളിപ്പെടുത്തി

ഇന്ന് രാവിലെ അബ്ദുൾ കലാം ദ്വീപിലെ പരീക്ഷണ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു മിസൈൽ വിക്ഷേപിച്ചത് വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ശാസ്ത്രജ്ഞരും പ്രതിരോധ വിഭാഗത്തിലെ ഉന്നതോദ്യോഗസ്ഥരും എത്തിയിരുന്നു

ആണവായുധത്തിന് പുറമേ പരമ്പരാഗത സ്ഫോടക വസ്തുക്കളും വഹിക്കാൻ മിസൈലിന് കഴിയും നേരത്തേ ഇതേ സ്ഥലത്ത് നിന്ന് അഗ്നി മിസൈലിന്റെ മറ്റൊരു ശ്രേണി പരീക്ഷിച്ചിരുന്നു

പുലർച്ചെ തുടങ്ങി മണിക്കൂറുകളോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഉച്ചയോടെ തമിഴ്നാട്ടിലെ മനിതി സംഘം പോലീസിന്റെ സഹായത്തോടെ മലയിറങ്ങി പോലീസ് അകമ്പടിയിൽ കാനന പാതയിലൂടെ സന്നിധാനത്തേക്ക് നീങ്ങിയെങ്കിലും ജനക്കൂട്ടത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് മുന്നോട്ടു പോകാൻ ആയില്ല സംഘർഷത്തിൽ നിന്നും യുവതികളെ രക്ഷിക്കാൻ പോലീസ് ഇവരെ ആദ്യം ഗാർഡ് റൂമിലേക്കും പിന്നീട് കൺട്രോൾ റൂമിലേക്കും മാറ്റി

അതേ സമയം തങ്ങളെ പോലീസ് നിർബന്ധപൂർവ്വം തിരിച്ചയയ്ക്കുകയായിരുന്നുവെന്ന് മനിതി സംഘാംഗങ്ങൾ പറഞ്ഞു എന്നാൽ വനിതകൾ സ്വന്തം ഇഷ്ടപ്രകാരം മടങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പ്രതികരിച്ചു

ഇന്ന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്

ഉച്ച കഴിഞ്ഞ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ശരംകുത്തിയിൽ എത്തുന്ന ഘോഷയാത്രയെ ദേവസ്വം ഉദ്യോഗസ്ഥർ സ്വീകരിച്ച് സന്നിധാനത്ത് എത്തിക്കും വൈകിട്ട് തങ്കഅങ്കി ചാർത്തി ദീപാരാധന നടക്കും

മരണസംഖ്യ കൂടാനാണ് സാധ്യത

പ്രകകതോവ അഗ്നിപർവ്വതം പൊട്ടിയതിനെ തുടർന്ന് കടലിനടിയിലുണ്ടായ പ്രകമ്പനങ്ങളാണ് സുനാമിക്ക് കാരണമെന്നാണ് നിഗമനം

ചന്ദ്രശേഖർ റാവു ഇന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായ്ക്കുമായി ഭുവനേശ്വറിൽ കൂടിക്കാഴ്ച നടത്തും പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് കോൺഗ്രസിതര ബി ജെ പി യിതര മുന്നണി രൂപീകരിക്കാനുള്ള ശ്രീ

റാവു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബ്ലൂനർജിയുമായി കൂടിക്കാഴ്ച നടത്തും

മൂടൽമഞ്ഞ് മൂലം രാവിലെ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടനുഭവപ്പെട്ടു

ഉത്തർപ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ തോതിലുള്ള ശീതക്കാറ്റ് അനുഭവപ്പെടുമ്പോൾ സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ശീതക്കാറ്റ് രൂക്ഷമാണ്

ജെ

രാജ്കോട്ട് ജില്ലയിലെ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസർ നായികയെ ഇരുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് കുൻവർജി ബവാലിയ പരാജയപ്പെടുത്തിയത്

ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളെക്കുറിച്ച് ചർച്ചകൾ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും ഇന്ന് രാത്രി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സഹമന്ത്രി ഡോ

ജെ

കോൺഗ്രസ് സ്ഥാനാർത്ഥി നമൻ പ്രപ്പിഷിക്സൽ കൊങ്ങടി എതിരാളിയായ ബി ജെ